ഡൽഹിയിൽ ആരംഭിച്ച ബി ജെ പി എക്സിക്യുട്ടീവ് യോഗം രണ്ടാം ദിനത്തിലേയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യോഗത്തെ അഭിസംബോധന ചെയ്യും

എസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ നോവോക് ജോകോവിച്ച് ഇന്ന് ദെൽ പെട്രോയെ നേരിടും

ജെ

ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി

കെ എന്നിവർ യോഗത്തിൽ സന്നിഹിതരാണ്

ഭാവിയിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നയരേഖ സംബന്ധിച്ച പ്രമേയം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് അവതരിപ്പിച്ചു ഇതിൽമേലുള്ള ചർച്ച ഇപ്പോഴും തുടരുകയാണ് സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും

മ്യൂട്ടിയൂറോപ്പിലെ ഈ മൂന്ന് രാജ്യങ്ങളിലും രാഷ്ട്രപതി രാട്ട്നീർഗ്ഗ് കോവിന്ദ് നടത്തിയ സന്ദർശനമാണ് ഉഭയകക്ഷിബ്ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് സഹായകമായത്

ഊർജ്ജം പരിസ്ഥിതി ടൂറിസം വ്യാപാരം സാമ്പത്തിക സേവനം നിക്ഷേപം പ്രതിരോധ സഹകരണം എന്നീ കരാറുകളിലാണ് ഒപ്പിട്ടതെന്ന് വിദേശകാര്യ വക്താവ് രുചി ഗംഗാ ശ്യാം അറിയിച്ചു

മൂന്നു രാജ്യങ്ങളിലെ പൌരൻമാരുമായും സാമ്പത്തികൃ വിദഗ്ധൻമാരുമായും രാഷ്ട്രീയ നേതാക്കളുമായും രാഷ്ട്രപതി ചർച്ച നടത്തി ചെക്ക് റിപ്പബ്ലിക്കുമായി സാങ്കേതിക പ്രതിരോധ മേഖലകളിൽ ഇന്ത്യ സഹകരിച്ച് പ്രവർത്തിക്കും രാജ്യത്തെ ചാൾസ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളെയും ശ്രീ

ഇന്ത്യയെ കുറിച്ച് പഠിക്കാൻ ചെക്ക് വിദ്യാർത്ഥികൾ കാണിക്കുന്ന താൽപര്യത്തെ രാഷ്ട്രപതി അഭിനന്ദിച്ചു

ചെക്ക് തലസ്ഥാനമായ പ്രേഗിലെ തക്കുറോവ പാർക്കിലെ ടാഗോർ പ്രതിമയിൽ അദ്ദേഹം ഇന്ന് പുഷ്പാഞ്ജലി അർപ്പിക്കും തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം രാഷ്ട്രപതി ഇന്ത്യയിലേയ്ക്ക് മടങ്ങും

വെങ്കയ്യനായിഡു ഇന്ന് അഭിസംബോധന ചെയ്യും

തുടർന്ന് നിരവധി ലോക നേതാക്കളുമായി ഉപരാഷ്ട്രപ്പതി കൂടിക്കാഴ്ച നടത്തും

റഷ്യൻ ഫെഡറേഷന്റെ ഉപപ്രധാനമന്ത്രി യൂറി ബോറിസ്വോയും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് സമ്മേളനം ശാസ്ത്ര സാങ്കേതികം വാണിജൃ നിക്ഷേപം തുടങ്ങിയ പരസ്പര ധാരണയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും

മഹാരാഷ്ട്ര പോലീസ് ഭീകരവിരുദ്ധ വിഭാഗമാണ് ഇവരെ പിടികൂടിയത് സമാന കേസിൽ നേരത്തെ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റിലായവർക്ക് തീവ്ര ഹിന്ദു സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് അറിയിച്ചു

വരും വർഷങ്ങളിൽ പൂർണ്ണമായ സാക്ഷരതാ ലക്ഷ്യം നേടാൻ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് നിരക്ഷരരായ വ്യക്തികളിൽ പഠനവേഗത വർദ്ധിപ്പിക്കുന്നതിന് പഠനോപകരണങ്ങളും അധ്യാപനരീതിയും ലളിതമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

വെള്ളം ്കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ ഉണ്ടായ പകർച്ചവ്യാധി കാരണം നിരവധി പേരാണ് മരിച്ചത്

മന്ത്രിമാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജില്ലകളിൽ ധനസമാഹരണത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഈ മഹായജ്ഞത്തിൽ മുഴുവൻ പേരും അവരവരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് സംഭാവന നൽകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഇന്നും നാളെയുമായി എറണാകുളത്തും തിരുവനന്തപുരത്തും സംഘടിപ്പിച്ചിട്ടുള്ള വിവിധ പരിപാടികളിലും കേന്ദ്രമന്ത്രി സംബന്ധിക്കും

വിശദ വിവരങ്ങളുമായി ലിൻസ

ഡി

ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും കൂടുതൽ പേരെ ഇൻഷുറൻസ് പരിരക്ഷക്ക് കീഴിൽകൊണ്ടുവരാനായി

വിരമിക്കലിന് ശേഷമുള്ള ഇൻഷുറൻസ് പദ്ധതികൾക്കും രാജ്യത്ത് പ്രിയമേറുകയാണ്

തലസ്ഥാനമായ പ്യോങ് യാങിൽ നടന്ന അഭ്യാസത്തിൽ ചൈനയിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുത്തു വിവിധ ശ്രേണിയിലുള്ള ദീർഘദൂര മിസൈലുകളും നൂതന യുദ്ധ സാമഗ്രികളും പരേഡിൽ പ്രദർശിപ്പിച്ചു

രണ്ടുപേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് ഗവൺമെന്റ് വക്താവ് അറിയിച്ചു

ഇതേ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിലാണ് കൂടുതൽ പേർക്കും ജീവഹാനി ഉണ്ടായത്

എസ് ഓപ്പൺ ടെന്നിസിൽ പുരുഷ സിംഗിൾസ് ഫൈനലിൽ സെർബിയയുടെ നോവോക് തോക്ക്യോവിച്ച് അർജന്റീനയുടെ ജുവാൻ മാർട്ടിൻ ദെൽ പോട്രോയെ ഇന്ന് നേരിടും

മത്സരത്തിൽ ജോക്കോവിച്ച് വിജയിച്ചാൽ നിലവിലെ പീറ്റ് സംപ്രാസിന്റെ റിക്കോർഡിന് ഒപ്പമെത്തും വനിതാ സിംഗിൾസിൽ അമേരിക്കയുടെ സെറീന വിലൃംസിനെ പരാജയപ്പെടുത്തി ജപ്പാന്റെ നവോമി ഒസാക കിരീടം കരസ്ഥമാക്കി